ടി നഷ്ടപരിഹാരം മുടങ്ങുന്നതായി കാണിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു

ത സംസ്ഥാനത്ത് മൂന്നിടങ്ങളിൽ നിന്നായി ഇന്നലെ വൻതോതിൽ കഞ്ചാവ് പിടികൂടി വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ അമേരിക്ക തന്ത്രപര പങ്കാളിത്തം സംബന്ധിച്ച നേതൃത്വ ഉച്ചകോടിയിൽ ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തും

എസ് ഇന്ത്യ വീക്ക്നാവിഗേറ്റിംഗ് ന്യൂ ചലഞ്ചസ് എന്ന ഒരാഴ്ചത്തെ സമ്മേളനം വാണിജ്യം നിക്ഷേപം എന്നിവയിലെ പരസ്പര സഹകരണം ഊർജ്ജം ആരോഗ്യ രക്ഷ സാങ്കേതിക രംഗം തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്

എസ് വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ പീയൂഷ് ഗോയൽ തുടങ്ങിയവർ തിങ്കളാഴ്ച ആരംഭിച്ച സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ദരര മോസ്കോയിൽ ഇന്നാരംഭിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ രാജ്യങ്ങളിലെ രാജ്യരക്ഷാ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യയിലെത്തി

റഷ്യൻ രാജ്യരക്ഷാ മന്ത്രിയുമായി ഉഭയകക്ഷി വിഷയങ്ങളിൽ ചർച്ച നടത്തുമെന്ന് രാജ്നാഥ് സിംഗ് ട്വിറ്ററിൽ കുറിച്ചു രുമ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ ചോദ്യോത്തര വേള ഒഴിവാക്കുന്നതിനെപ്പറ്റി എല്ലാ പ്രതിപക്ഷ പാർട്ടികളുമായും നേരത്തെ തന്നെ സംസാരിച്ചിരുന്നുവെന്ന് പാർലമെന്ററികാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു പശ്ചിമ ബംഗാൾ എം പി ഡെറിക് ഒബ്രെയ്ൻ ഒഴികെ എല്ലാവരും തീരുമാനം അംഗീകരിച്ചിരുന്നു ശൂന്യവേള അരമണിക്കൂറായി ചുരുക്കുന്ന കാര്യത്തിലും എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നുവെന്നും പ്രഹ്ലാദ് ജോഷി പറഞ്ഞു ഗവൺമെന്റ് ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ലെന്നും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ സന്നദ്ധമാണെന്നും ജോഷി വ്യക്തമാക്കി രുദ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ജി

ടി നഷ്ട പരിഹാരം മുടങ്ങുന്നതായി കാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

മറ്റു ജില്ലകളിൽ നൂറിൽ താഴെയാണ് രോഗബാധിതർ

ദേദ കണ്ണൂർ കല്യാശ്ശേരിയിൽ ഇന്ന് നടത്താനിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം ഉദ്ഘാടനം മാറ്റി പ്രദേശം കണ്ടെയ്ൻമെന്റ് സോണായി മാറിയതിനെത്തുടർന്നാണിത് വയനാട് മീനങ്ങാടി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിൽ ഏതാനും പ്രദേശങ്ങളെയും മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണാക്കിയിട്ടുണ്ട്

കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലെ ഒന്നും രണ്ടും വാർഡുകൾ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി

ദേദ രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം എട്ടു ലക്ഷം കടന്നു

ദേദ ഗുരുതരമായി കോവിഡ് ബാധിച്ച രോഗികളിൽ സ്റ്റീറോയിഡ് മരുന്നുകൾ പ്രയോജനപ്പെടുമെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി

ദേദ ഈ മാസം ഏഴിന് മെട്രോ സർവ്വീസുകൾ പുഃനരാരംഭിക്കുന്നതിന് മുന്നോടിയായി കേന്ദ്ര ഗവൺമെന്റ് അടിസ്ഥാന മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു

ആദ്യഘട്ടത്തിൽ രാവിയെും വൈകിട്ടും സൌകര്യപ്രദമായ സമയങ്ങളിൽ സർവ്വീസ് ആരംഭിച്ച് പിന്നീട് മുഴുവൻ സമയവും ട്രെയിൻ ഓടിക്കാം

ജീവനക്കാർക്കും നിർദ്ദേശം ബാധകമാണ് രമേ ത്വശൂരിൽ ഇന്ന് സൈബർ പുലികളി കോവിഡ് സാഹചര്യത്തിൽ നഗരവീഥിയിലെ പുലിക്കളി ഒഴിവാക്കിയെങ്കിലും അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതിയെന്ന ഫേസ്ബുക്ക് പേജിലാണ് വൈകിട്ട് മൂന്നുമുതൽ നാലുവരെ പുലിക്കളി അരങ്ങേറുന്നത്

തൃശൂരിലെ ഓണാഘോഷങ്ങളുടെ സമാപനം കൂടിയാണ് പൂരുരുട്ടാതി ദിവസത്തെ പുലിക്കളി

കൂടുതൽ വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ്

വാഹന പരിശോധന നടത്തുകയായിരുന്ന എക്സൈസ് സംഘത്തെ വെട്ടിച്ച് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു

ആന്ധ്രയിൽ നിന്ന് എത്തിച്ചതാണ് കഞ്ചാവെന്ന് പിടിയിലായ മൂന്നുപേർ അറിയിച്ചു പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശി അഹമ്മദ് കബീർ കോഴിക്കോട് കുണ്ടുങ്ങൽ കെ ആർ ഹക്കിം ഷൊർണൂർ സ്വദേശി ജാഫർ അലി എന്നിവരാണ് എക്സൈസിന്റെ കസ്റ്റഡിയിലായത് കണ്ണൂർ ചാലോട് നിന്ന് മൂന്നര കിലോ കഞ്ചാവുമായി ഒരാളെ എക്സൈസ് അറസ്റ്റു ചെയ്തു

ന്യൂസ് ഡസ്ക് ആകാശവാണി രുഭ ആലപ്പുഴ ബൈപാസ് ഫ്ലൈ ഓവറിലെ അവസാനഘട്ട ജോലിക്ക് മുന്നോടിയായി മാസ്റ്റിക് അസ്ഫാൾട്ടിംഗ് ആരംഭിച്ചതായി ജി സുധാകരൻ അറിയിച്ചു

ബൈപാസ് നിർമ്മാണത്തിന്റെ പുരോഗതിയെപ്പറ്റി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് നൽകുമെന്നും ജി സുധാകരൻ പറഞ്ഞു രുദ ഇടുക്കി ശാന്തിപാലത്ത് പുതിയ പാലം നിർമ്മിക്കാൻ പ്രാഥമിക നടപടി ആരംഭിച്ചു മ്ലാമല ഫാത്തിമ മാതാ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് എഴുതിയ കത്ത് ഹർജിയായി പരിഗണിച്ച് പാലം നിർമ്മാണത്തിന് ഉത്തരവിടുകയായിരുന്നു നേരത്തെ ലീഗൽ സർവ്വീസ് അതോറിറ്റി ചെയർമാൻ ഹൈക്കോടതി നിർദ്ദേശ പ്രകാരം സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു പാലമില്ലാത്തതിനാൽ വിദ്യാഭ്യാസം മുടങ്ങുന്നതടക്കം ദുരിതങ്ങൾ വിവരിച്ചാണ് വിദ്യാർത്ഥികൾ കത്തയച്ചത്

പ്രൈമറി ക്ലാസുകൾക്ക് കായിക വിദ്യാഭ്യാസം പൊതുക്സാസ് രാവിലെ പത്തരക്ക് സംപ്രേഷണം ചെയ്യും

മുഖ്യമന്ത്രി പാർട്ടിയിലെ ഗുണ്ടകൾക്ക് അഴിഞ്ഞാടാൻ മൌനാനുവാദം നൽകിയിരിക്കുകയാണെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ ആരോപിച്ചു

തയ്യാറാകണമെന്നും കൊടിക്കുന്നിൽ ആവശ്യപ്പെട്ടു

ഇരു വിഭാഗം പ്രവർത്തകർക്കും ഒരു പൊലീസുകാരനും പരിക്കേറ്റു കോളനിക്കുള്ളിലൂടെ ബൈക്ക് റെയ്സിംഗ് നടത്തിയതിനെ ത്തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് രുമ മലയാള സർവ്വകലാശാല ഭൂമി കുംഭകോണത്തിനെതിരെ മലപ്പുറം ജില്ലാ ബി ജെ പി പ്രസിഡന്റ് രവി തേലത്ത് സർവ്വകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ സത്യഗ്രഹം നടത്തി

ജെ പി സംസ്ഥാന വക്താവ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രുമ ആലപ്പുഴ ജില്ലയിലെ പി ബി ജംഗ്ഷൻ പൊള്ളേത്തൈ ശാസ്ത്രിമുക്ക് തീരമേഖലയിൽ ഇന്നുമുതൽ മീൻപിടുത്തവും വിപണനവും അനുവദിച്ച് ജില്ലാ കലക്ടർ ഉത്തരവായി

രേര മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റുമാരുടെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇന്ന് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി

സംസ്ഥാന പ്രസിഡന്റ് കെ